മഹാരാഷ്ട്രാ തീരത്ത് വിതച്ച് നിസർഗ ചുഴലിക്കാറ്റ് ്ആഞ്ഞടിച്ചു

ശക്തമായ മഴ

അവശ്യ ന് സാനന നിയമ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം

സ്ഥിരീകരിച്ചു

നേരത്തെ നിശ്ചയിച്ചിരുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ക് ക്കോപിഡ് പശ്ചാത്തലത്തിൽ നടന്നിരുന്നില്ല

മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

പ്പ്യോമഗതാവും പുനഃക്രമീകരിച്ചിട്ടുണ്ട്

ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലെർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്

എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്

കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി ഡാമിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു

കാർഷിക മേഖല്ലിയിൽ പരിവർത്തനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശ്യത്തോടെയുള്ളത്താണ് നിയമഭേദഗതി

ഭേദഗതിയുലൂടെ ഭക്ഷ്യധാനൃങ്ങൾ എണ്ണക്കുരുക്കൾ ഉരുളക്കിഴങ്ങ് ഉള്ളി പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവ അവശ്യ വസ്തു നിയമനത്തിന്റെ പരിധിയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ അറിയിച്ചു രാജ്യത്ത് നിക്ഷേപം ആകർഷിക്കുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും സെക്രട്ടറിമാരുടെ ഉന്നതാധികാരസമിതികളും പ്രോജക്ട് ഡെവലപ്മെന്റ് സെല്ലുകളും രൂപീകരിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നല്കി

ഇവരുടെ സേവനം ഇന്ത്യൻ കമ്പനികൾക്കും വിദേശകമ്പനികൾക്കും ലഭ്യമാക്കുകയും ലക്ഷ്യമാണ് ശേഖരിച്ച വിവരങ്ങൾ കമ്പനികൾക്ക് നൽകി തൊഴിൽ ലഭൃത ഉറപ്പാക്കാനാണ് നീക്കം കോവിഡ് മഹാമാരി മൂലമുണ്ടായ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നതിന് രാജ്യം ഒറ്റക്കെട്ടായി കേന്ദ്രസർക്കാരിന് പിന്തുണ നൽകുന്നത് നിർണ്ണായകമാണെന്ന് നൈപുണ്യ വികസന സംരംഭക വകുപ്പുമന്ത്രി ഡോ

സ്വേഡ്സ് നൈപുണ്യ കാർഡിനെ കുറിച്ച് വിവരം നല്കാൻ വന്ദേഭാരത് ദൌത്യത്തിൽ പങ്കെടുക്കുന്ന വിമാനങ്ങളിൽ ഇത് സ്ലാംബന്ധിച്ച് അറിയിപ്പ് നൽകുമെന്ന് വ്യോമയാന വകുപ്പ് മുൻപ് ഹർദ്ദീപ്പുരി പറഞ്ഞു വിദേശത്ത് കുടുങ്ങി കിടക്കുന്നു ജന്തൃ്ക്കാർക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്നും തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ വെല്ലുവിളി നേരിടാൻ ഫ്ലൂഹായിക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ്

ന്യൂസ്ഡസ്ക് ആകാശവാണി

സി എം

ഭീകരസംഘടനയായ ജയ്ഷെ മൊഹമ്മദ് അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്ന് സേനാവൃത്തങ്ങൾ അറിയിച്ചു രഹസ്യ വിവരത്തെ തുടർന്ന് പ്രദേശം വളഞ്ഞ സുരക്ഷാ സേനക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് ആയുധങ്ങളും കണ്ടെടുത്തു

പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിലാണ് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ മോർട്ടാറുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തത്

ആളപായമുണ്ടായതായി റിപ്പോർട്ടില്ല

ജൂലൈ മുതൽ ഇത് നിലവിൽ വരും